കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ എറണാകുളം കോട്ടയം കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഇന്ന് പ്രചാരണം നടത്തും

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പര്യടനം ഇന്ന് കോഴിക്കോട് ജില്ലയിൽ

പ്രധാന പാർട്ടികളുടെ ദേശീയ നേതാക്കളാണ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്

കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ പ്രചാരണം പൂർത്തിയാക്കി തിരിച്ചുപോയി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പ്രചാരണം നടത്തും ഓരോ വോട്ടും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടും നഷ്ടപ്പെടാതിരിക്കാൻ തന്ത്രങ്ങളാണ് മൂന്ന് മുന്നണികളും ആവിഷ്കരിക്കുന്നത്

പ്രചാരണ രംഗത്തെ വീറും വാശിയും തെരഞ്ഞെടുപ്പ് ചൂട് ഉയർത്തുകയാണ് ദ്ദേ ആഭ്യന്തര മന്ത്രി അമിത്ഷാ എൻ

എ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്നലെ രാത്രി കൊച്ചിയിലെത്തി രാവിലെ തൃപ്പൂണിത്തുറയിൽ റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലും കൊല്ലം പുറ്റിങ്ങലിലും പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം വൈകീട്ട് പാലക്കാട് കഞ്ചിക്കോട് നടക്കുന്ന റോഡ് ഷോയിലും പങ്കെടുക്കും തുടർന്ന് അമിത്ഷാ കോയമ്പത്തൂരിലേക്ക് പോകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നേതാക്കൾ എൻ

എ പ്രചാരണത്തിനായി വരുംദിവസങ്ങളിൽ കേരളത്തിലെത്തുന്നുണ്ട് ദേദ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബി

പി പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറാണ് ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് പ്രകടന പത്രിക പ്രകാശനം ചെയ്യുന്നത് ദേദ കേരളത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ എൽ

എഫ് ഗവൺമെന്റിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് സി

തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഭൂരിഭാഗവും പൂർത്തിയാക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു കണ്ണൂർ പഴയങ്ങാടിയിൽ എൽ

എഫ് തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സീതാറാം യച്ചൂരി

റബർ കർഷകരുടെ മാത്രമല്ല മേഖലയുടെ സാമ്പത്തിക ഉത്തേജനം ഉറപ്പു വരുത്തുകയാണ് ലക്ഷ്യമെന്നും രാഹുൽ ഗാന്ധി കോട്ടയത്ത് വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പറഞ്ഞു നോട്ട് നിരോധനവും ജി

ടിയും നടപ്പാക്കിയതോടെ ജനങ്ങളുടെ കയ്യിൽ പണമില്ലാതായെന്നും ജനങ്ങളിലേക്ക് പണമെത്തിക്കുക മാത്രമാണ് തളർന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവ് പകരാനുള്ള മാർഗമെന്നും അദ്ദേഹം പറഞ്ഞു

ഡി എഫ് അധികാരത്തിലെത്തിയാൽ ന്യായ് പദ്ധതി ആദ്യം നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ദേദ മൂന്ന് മണ്ഡലങ്ങളിൽ ബി

പി സ്ഥാനാർഥികളുടെ പത്രിക തള്ളിയത് ജാഗ്രത കുറവുമൂലം ആണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞു

എഫ് കേരളത്തെ സ്ത്രീ സൌഹൃദ സംസ്ഥാനമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി സ്ത്രീകളുടെ തൊഴിൽ അവസരങ്ങൾ നാലിൽ ഒന്നായി ഉയർത്തും ഗൃഹജോലിയുടെ മൂല്യം അംഗീകരിച്ചു കൊണ്ടാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേദ സംസ്ഥാനത്ത് കോൺഗ്രസും ബി

പിയും തമ്മിൽ ധാരണ ഉണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻതന്നെ അതിന്റെ തെളിവുകളും പുറത്തുവിടണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു

എഫും ബി

പിയും തമ്മിൽ ഒരു ധാരണയും ഇല്ലെന്നും ഇന്ത്യയിൽ ബി

പിയെ എതിർക്കുന്ന ഏക പാർട്ടി കോൺഗ്രസാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തുടർ ഭരണത്തിനായി എൽ

എഫ് ബി

പിയുടെ സഹായം തേടിയിട്ടുണ്ടെന്നും ആർ

എസ് നേതാവ് ബാലശങ്കറിന്റെ വെളിപ്പെടുത്തൽ ഇതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടനാട് നിയോജക മണ്ഡലം യു

എഫ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി

ഇടത് മുന്നണിയുടെ പണക്കൊഴുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നതെന്നും ഇത് ജനകീയ വിജയത്തെ അട്ടിമറിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരിക്കൂറിൽ യു

എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേദ ഇരുമുന്നണികളേയും മാറി മാറി പരീക്ഷിച്ച കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്നത് വസ്തുതയാണെന്ന് ബി

പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

കോഴിക്കോട് സൌത്ത് മണ്ഡലം എൻ

എ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേദ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ശശി തരൂർ എം പിയും ഇന്ന് കോഴിക്കോട് ജില്ലയിൽ യു

എഫ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംബന്ധിക്കും ദര പത്തനംതിട്ടയിൽ ശബരിമല പ്രശ്നം മുഖ്യവിഷയമാക്കി ബിജെപിയും യുഡിഎഫും പ്രചാരണം കടുപ്പിക്കുമ്പോൾ വികസനത്തെ മുൻനിർത്തി എൽഡിഎഫും പ്രചാരണരംഗത്ത് സജീവമാണ് ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ നൽകുന്ന റിപ്പോർട്ട്

ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളിലും ശബരിമല തന്നെയാണ് പ്രചാരണ വിഷയം കാർഷിക രംഗത്തെ തകർച്ചയും കുടിവെള്ളപ്രശ്നവും കാട്ടുമൃഗങ്ങളുടെ ശല്യവുമെല്ലാം മലയോര മേഖലയായ പത്തനംതിട്ട ജില്ലയിൽ സ്ഥാനാർഥികളുടെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യ മന്ത്രി ഉമ്മൻ ചാണ്ടിയും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ശബരിമല വിഷയം ഉയർത്തിയാണ് വോട്ടിതേടുന്നതെങ്കിൽ ഈ വിഷയം പ്രചാരണത്തിൽ നിന്നു പരമാവധി മാറ്റിനിർത്തി വികസനത്തെ മുൻനിർത്തിയാണ് എൽഡിഎഫ് വോട്ടഭ്യർഥിക്കുന്നത്

ദേദ കൊല്ലം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കലക്ടർ ബി അബ്ദുൾ നാസർ പറഞ്ഞു

സ്വാതന്ത്ര്യ സമര സേനാനി നാരായണ പിള്ളയെ ചടങ്ങിൽ പൊന്നാട നൽകി ആദരിച്ചു

ക്ഷയരോഗമുണ്ടാക്കുന്ന ആരോഗ്യ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പൊതുജനത്തിന് അവബോധം സൃഷ്ടിക്കുന്നതിനും ആഗോള ടിബി പകർച്ചവ്യാധി അവസാനിപ്പിക്കുന്നതിനുമായാണ് ദിനം ആചരിക്കുന്നത്

ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് നാലായിരത്തോളം പേർ ഓരോ ദിവസവും ക്ഷയരോഗം ബാധിച്ച് മരിക്കുന്നുണ്ട്

സമയമായി ഇനി വൈകരുത് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷയരോഗ ദിന പ്രമേയം ദേദ ഐക്യരാഷ്ട്രസംഘടനയുടെ സുസ്ഥിര വികസന ലക്ഷ്യം അനുസരിച്ച് സാർവത്രിക ആരോഗ്യ സുരക്ഷ കൈവരിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ദേശീയ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി രാജ്യത്ത് ഇത് നടപ്പിലാക്കിവരികയാണെന്ന് ലോക ക്ഷയരോഗദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു കോവിഡിനെതിരായ പോരാട്ടത്തിനിടയിലും ദേശീയ ക്ഷയരോഗ നിർമാർജന പരിപാടിയുടെ ഭാഗമായ പ്രവർത്തനങ്ങൾ മികച്ചരീതിയിൽ മുന്നോട്ടുകൊണ്ടുപോകാനായത് പ്രശംസനീയമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു

ബന്ധപ്പെട്ടവർക്ക് ഇതുസംബന്ധിച്ച നിർദ്ദേശം നൽകണമെന്ന് ചീഫ് സെക്രട്ടറിമാർക്കും അഡ്മിനിസ്ട്രേറ്റർമാർക്കും അയച്ച കത്തിൽ അദ്ദേഹം പറഞ്ഞു ദേദ കോവിഡ് വ്യാപനം കാര്യക്ഷമമായി തടയുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കി

പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നതും അകലം പാലിക്കുന്നതും കർശനമായി നടപ്പാക്കണം അന്തർ സംസ്ഥാന യാത്രകൾക്ക് നിയന്ത്രണം ഉണ്ടാവില്ലെന്നും മാർഗനിർദ്ദേശം വ്യക്തമാക്കി ദേദ ആഗോള പകർച്ചവ്യാധിക്കെതിരായ പോരാട്ടത്തിൽ സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം അഞ്ച് കോടി കവിഞ്ഞു

ദ്ദേ പൂനെയിൽ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ജയം

അരങ്ങേറ്റ മത്സരത്തിൽ നാല് വിക്കറ്റ് വീഴ്ത്തിയ പ്രസിദ്ധ് കൃഷ്ണയാണ് ഇംഗ്ലണ്ടിനെ തകർത്തത് ഏകദിനത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം അരങ്ങേറ്റ മത്സരത്തിൽ നാല് വിക്കറ്റുകൾ വീഴ്ത്തുന്നത്